കൂൽഭൂഷൺ ജാദവ് കേസിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാകിസ്ഥാന് രൂക്ഷ വിമർശനം

അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹം അടുത്ത മാസം നാല് വരെ സംസ് കരിക്കരുതെന്ന് കോടതി

പുനസംഘടനാ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ ജമ്മുകശ്മീർ സംസ്ഥാനം ഇന്നലെ അർധരാത്രി മുതൽ ഇല്ലാതായി ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭ് ഭായ് പട്ടേലിന്റെ ജന്മവാർഷികദിനമായ ഇന്ന് നടന്ന ചടങ്ങിൽ ഇരു പ്രദേശങ്ങളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറുമാരും ചുമതലയേറ്റു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ലേയിൽ രാവ്ടിലെ നടന്ന ചടങ്ങിൽ ജമ്മുകശ്മീർ ചീഫ് ജസ്റ്റിസ് ഗീത്രു മിത്തൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ്യ്ക്കു ശേഷം പ്രദേശത്തെ സ്ഥിതിഗതികൾ ശ്രീ

അതേസമയം ഉമംഗ് നരുലയെ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ ഉപദേശകനായി കേന്ദ്രഗവണ്മെന്റ് നിയോഗിച്ചു

ഖദാരയെ ലഡാക്ക് മേഖല പൊലീസ് മേധാവിയായി നിയമിച്ചു ജമ്മുകശ്മീർ പുനസംഘടാ നിയമം ആഗസ്റ്റ് അഞ്ചിന് പാർലമെന്റ് പാസാക്കിയതോടെയാണ് ജമ്മുകൾമീർ വിഭജിച്ച് രണ്ടു കേന്ദ്ര ഭരണപ്രദേശങ്ങളായി മാറിയത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ചൈനയുൾപ്പെടെ മറ്റു രാജ്യങ്ങൾ അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു

റേഡിയ്ക്ക്ശ്മീർ എന്നായിരുന്നു ജമ്മുകശ്മീരിലെ മൂന്നു ആകാശവാണി നിലയങ്ങളും അറിയപ്പെട്ടിരുന്നത്

ഒ ശശിശേഖർ വെമ്പതി അറിയിച്ചു

ഗുജറാത്തിലെ പട്ടേൽ സ്മാരക്ക്മാ്യ ് കേവാദയയിലെ ഏകതാ പ്രതിമയിൽ പ്രധാനമന്ത്രി ന്ദരേന്ദ്രമോദി രാവിലെ പുഷ്പാർച്ചന നടത്തി

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

ഇന്ദിരാഗാന്ധി അന്ത്യവിശ്രമം കൊളളുന്ന ന്യൂഡൽഹിയിലെ ശക്തിസ്ഥലിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു കോൺഗ്രസ് ഇടക്കാല അധൃക്ഷ സോണിയാഗാന്ധി മുൻപ്രധാനമന്ത്രി മൻമോഹൻസിംഗ് എന്നിവർ ഇന്ദിരാഗാന്ധിക്ക് പ്രണാമം അർപ്പിച്ചു

എ

മുംബൈയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രിയും റിപ്പബ്ലിക്ക്ൻ പാർട്ടി ഓഫ് ഇന്ത്യ അധ്യക്ഷനുമായ രാംദാസ് അത്വാലെ പ്പറഞ്ഞു

ശിവസംഗ്രാം സ്വാഭിമാനിപക്ഷ എന്നിവരാണ് യോഗം ചേർന്ന് ബി ജെ

എന്നാൽ യോഗത്തിൽ നിന്ന് ശിവസേന വിട്ടുനിന്നു

ജെ

ആദിത്യ താക്കറെയോട് ബഹുമാനം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി പദത്തിന് ദേവേന്ദ്ര ഫഡ്നാവിസാണ് അനുയോജ്യനെന്നും ശ്രീ

മഹാരാഷ്ട്രയിൽ രണ്ടു ദിവസത്തിനകം ഗവൺമെന്റ് രൂപീകരിക്കുമെന്ന് ബി ജെ

ശിവസേനയുമായുള്ള പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഗണിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ശിവസേനയുടെ നിയമസഭാകക്ഷി നേതാവായി ഏക്നാഥ് ഷിൻഡെയെ ഐകകണ്ഠേന തെരഞ്ഞെടുത്തു പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഇന്ന് മുംബൈയിലെ ശിവസേന ഭവനിൽ ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിലാണ് തീരുമാനം താനെ ജില്ലയിലെ കോപ്രി പച്ച്പഖാദി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഷിൻഡെ പാർട്ടിയിലെ തലമുതിർന്ന നേതാവാണ്

ജെ പിയും തമ്മിലുള്ള തർക്കമാണ് മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് രൂപീകരണം വൈകുന്നത്

ചിദംബരത്തിന്റെ ആരോഗൃനില സംബന്ധിച്ച് വിവരം നൽകാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു

കൊൽക്കത്തിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ഭൌതികശരീരത്തിൽ നിരവധിപേർ ആദരാഞ്ജലി അർപ്പിച്ചു കൊൽക്കത്തയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്തൃം ദേശീയ സെക്രട്ടറിയേറ്റ് അംഗമായ ഗുരുദാസ് ദാസ് ഗുപ്ത എ ഐ

സി

യാത്രക്കാർ കൊണ്ടു വന്ന ഗൃാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്

താഴ്ന്നപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി

ആലപ്പുഴ തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ കടലാക്രമണം രൂക്ഷമായി

അടുത്ത മണിക്കുറ്റുക്ളിൽ ചുഴലിക്കാറ്റ് ലക്ഷദ്വീപിലൂടെ കടക്കുന്നതിനാട്ടു നാവികസേനക്ക് ജാഗ്രതാ നിർദേശം നൽകിയിട്ടുണ്ട്

കൊല്ലപ്പെട്ട മണി വാസകത്തിന്റെ സഹോദരിയും കാർത്തിയുടെ സഹോദരനുമാണ് കോടതിയെ സമീപിച്ചത് പാലക്കാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്കോടതിയുടേതാണ് ഉത്തരവ്

വിഷയം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തരപ്രമേയ ചർച്ചക്ക് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക് തീരുമാനം എടുത്ത് സർവകലാശാല മോഡറേഷൻ സിൻഡിക്കേറ്റെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മന്ത്രി കെ